സ്വദേശങ്ങളിൽ എത്തിക്കാൻ സൂപ്രീംകോടതി നിർദ്ദേശം

പഞ്ചാബ് നാഷണൽ ബാങ്ക് പ്പായ്പാ തട്ടിപ്പിലെ പ്രതി നീരവ് മോദിയുട്ട് വസ്തുവകകൾ കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡ്ട്യറ്ക്ടറേറ്റിന് കോടതി അനുമതി

തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്ത് കൂടുതൽ പ്രദേശങ്ങളിലേക്കെത്തി

നാട്ടിൽ മടങ്ങിയെത്തുന്ന കുടിയേറ്റ തൊഴിലാളികളെ യോഗ്യത അനുസരിച്ച് ജോലി നൽകി പുനരധിവസിപ്പിക്കാൻ നടപടിയെടുക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു അടച്ചിടൽ വൃവസ്ഥകൾ ലംഘിച്ചതിന്റെ പേരിൽ കുടിയേറ്റ തൊഴിലാളികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുന്ന കാര്യം പരിഗണിക്കാനും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു

ജെ പി ഓൺലൈനായി ്സംഘടിപ്പിക്കുന്ന മഹാരാഷ്ട്ര ജൻ സമ്പാദ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി ഇന്തൃ ചൈന ചർച്ചയ്ക്കിടെ രാജൃത്തിന്റെ യശസ്സിന് യാതൊരുവിധ കോട്ടവും തട്ടാത്ത തരത്തിൽ മാത്രമേ കരാറുകൾ സാധ്യമാക്കൂ എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഈ മാസം ആറിന് ഇരുരാജ്യങ്ങൾക്കിടെ നടന്ന സൈനിക തല ചർച്ച ആശാവഹമായിരുന്നതായും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രണ്ടുകൂട്ടരും സന്നദ്ധത പ്രകടിപ്പിച്ചതായും രാജ്യരക്ഷാമന്ത്രി വൃക്തമാക്കി

കുപ്വാര പോലീസും കരസേനയുടെ സിക്സ് ആർ ആറും കേരൻ ഗ്രാമത്തിലും നിയന്ത്രണരേഖയിലെ വനങ്ങളിലും സംയൂക്തമായി തിരച്ചിൽ നടത്തിയതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു

സ്ഫോടകവസ്തു നിയമപ്രകാരം കേരാൻ പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട എഫ്

ആർ രേഖപ്പെടുത്തി

അതിനിടെ വായ്പയുടെ ആവ്ശ്യ്ത്തിനായി ബാങ്കിന് ഈട് നൽകിയ വസ്തുക്കളെ ഉത്തൂർവീൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സാമ്പത്തിക കുറ്റകൃത്യം തടയൽ നീയമപ്രകാരമാണ് കോടതി നടപടി നേരത്തെ വസ്തുവകകൾ മർവ്വിപ്പിക്കുന്നതിനിടെ തന്നെ കൂടി കേൾക്കണമെന്ന നീരവ് മ്മോദ്വിയുടെ അപേക്ഷ കോടതി നിരസിച്ചിരുന്നു

ബി ഐ അറസ്റ്റ് ചെയ്തു രാമഗഡ് ജില്ലയിലെ റോഡ് നിർമ്മാണ പദ്ധതിയിലെ ദർഘാസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അറസ്റ്റ്

ബി ഐ യ്ക്കും അഴിമതി നിരോധന ബ്യൂറോയ്ക്കും ദർഘാസ് ശുപാർശ സമിതിയുടെ അധികാരമുള്ള പ്രതി പ്രശാന്ത് കുമാറിനെതിരായി പരാതി ലഭിച്ചിരുന്നു

ഇന്ന് മുതൽ നിരീക്ഷണം കൂടുതൽ കർശനമാക്കും

തുറക്കാൻ തീരുമാനിച്ച ആരാധനാലയങ്ങളും ഹോട്ടലുകളും മാളുകളും ഇന്നലെ ശുചീകരിച്ചു

നടപ്പ് ബജറ്റ് വിഹിതത്തിന്റെ പകുതിയിലേള് ് വരും ഇത്

എസ് മുഖാന്തിരം ഫോം ജി

ആർ മൂന്ന് ബി പൂരിപ്പിക്കാൻ കേന്ദ്രസർക്കാർ ഇന്നുമുതൽ സൌകര്യമൊരുക്കി

ഇതിലൂടെ ജി

ടി സമർപ്പണ നടപടികൾ കൂടുതൽ ലളിതമാക്കാൻ കഴിയും പുതിയ സംവിധാനത്തിലൂടെ നിൽ ജി

ടി റിട്ടേൺ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലോഗിൻ ചെയ്യാതെ എസ്

എസിലൂടെ തന്നെ റിട്ടേണുകൾ സമർപ്പിക്കാവുന്നതാണ്

പുതുതായി ആറ് പ്രദേശങ്ങളികൂടി ഹോട്ട്സ്പോട്ടുകളാക്കി

കോവിഡ് പടരുന്ന സാഹചരൃത്തിൽ പത്താം ക്ലാസ്സിലെ പരീക്ഷകൾ അടുത്ത മാസം വരെ നീട്ടിവക്കാൻ മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് സർക്കാരിന് നിർദ്ദേശം നൽകി

തെക്കൻ കർണാടകം തമിഴ്നാടിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കു പടിഞ്ഞാറ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര ഭൌമ ശാസ്ത്ര മന്ത്രാലയം വൃക്തമാക്കി

ഗുജറാത്തിൽ കാലവർഷത്തിന് മുന്നോടിയായി ഇന്നലെ പരക്കെ മഴ പെയ്തു സൌരാഷ്ട്രയിലും മധ്യ ഗുജറാത്തിലും അതിശക്തമായ മഴയാണ് ലഭിച്ചത് അടുത്ത മൂന്നു ദിവസം സൌരാഷ്ട്രയിലും സംസ്ഥാനത്തിന്റെ വടക്കും മധ്യഭാഗത്തെ ജില്ലകളിലും മഴ കനക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ സൂചന അതിനിടെ കർണ്ണാടകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ കണ്ടുതുടങ്ങിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത രണ്ട് ദിവസം കർണ്ണാടകയിൽ മഴ ശക്തമാകൂമെന്നാണ് മുന്നറിയിപ്പ്

ഇതര സംസ്ഥാനങ്ങളിൽനിന്നുള്ള ബോട്ടുകൾ അതത് സ്ഥലങ്ങളിലേക്ക് മടങ്ങി

ഗൾഫ് രാജ്യങ്ങൾക്കു പുറമേ സിംഗപ്പൂർ മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും സർവീസ് ഉണ്ടാകും സംസ്ഥാനത്തെ നാല് വിമാനത്താവളങ്ങളിലും വിമാന സർവ്വീസുകൾ ഉണ്ടാകും ഇന്ന് ഗൾഫിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തിൽ മൂന്നും കൊച്ചിയിൽ രണ്ടും കണ്ണൂരിൽ ഒരു വിമാനവും എത്തും